ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നാലാംഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം അവസാന ഘട്ടത്തിലേയ്ക്ക്

വാശിയേറിയ പ്രചാരണ രംഗത്ത് വോട്ട് അഭ്യർത്ഥിച്ച് ദേശീയ നേതാക്കളുടെ ശക്തമായ സാന്നിധ്യം കൂടുതൽ വിവരങ്ങളുമായി സുനീഷ്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഝാർഖണ്യിലും പശ്ചിമ ബംഗാളിലും തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധ ഒ്ചയ്തു ഇന്ന് അദ്ദേഹം ബീഹാറിലെ ദർഭംഗ ഉത്തർപ്രദേശിലെ ബന്ത എന്നിവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും

ജെ

കോൺഗ്രസ് പ്രസിഡന്റ രാഹുൽഗാന്ധി രാജസ്ഥാനിലെ ജാലോർ അജ്മീർ കോട്ട എന്നിവിടങ്ങളിൽ പൊതുജനങ്ങളുമായി സംവധിക്കും

പി അധ്യക്ഷ മായാവതി ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂർ കനൌജ് തുടങ്ങിയ മേഖലയിലെ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ മൽസരിക്കുന്നതിന് നാളെ നാമനിർദ്ദേശപത്രിക സമർപ്പിക്കും

വി

നടന്നുകൊണ്ടിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും അഞ്ച് പോളിംഗ് ബൂത്തുകളിലെ വി വി പാറ്റ് സ്ലിപ്പുകൾ ഒത്തുനോക്കണമെന്ന് കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശവും നൽകിയിരുന്നു നേരത്തെ ഇത് ഒരു പോളിംഗ് ബൂത്തിന് ചെയ്യാനായിരുന്നു തീരുമാനം എന്നാൽ ഒന്നിൽ നിന്ന് അഞ്ചിലേയ്ക്കുള്ള വർദ്ധന യുക്തമല്ലെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഹർജിയിൽ ആരോപിച്ചു

ജി പി ദിൽബാഗ് സിംഗ് ശ്രീനഗറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം

നിരവധി ജെയ്ഷ് ഭീകരവാള്ദികൾ ഈ വർഷം കൊല്ലപ്പെട്ടതിനാൽ കശ്മീർ താഴ്വരയിൽ നിലവിൽ ജെയ്ഷ് നേതൃത്വം ഇല്ലെന്ന് ജി ഒ

എസ് ധില്ലൺ പ്രസ് കോൺഫറൻസിനെ അറിയിച്ചു

കൊറിയൻ ഉപദ്വീപിലെ ആണവ പ്രശ്നം ഇരുനേതാക്കളും ചർച്ച ചെയ്യും ചർച്ചകൾക്കായി ശ്രീ കിം സ്വകാര്യ ട്രെയിനിൽ ഇന്നലെ റഷ്യയിലെത്തി ഹനോയിയിൽ ഈ വർഷം ആദ്യം അമേരിക്കൻ പ്രസിഡന്റുമായി നടത്തിയ ആണവ ചർച്ച പരാജയപ്പെട്ടതിനാൽ പുചിന്റെ പിന്തുണ തേടാനാണ് കിം റഷ്യയിലെത്തിയതെന്ന് കരുതപ്പെടുന്നു കൊറിയൻ ഉപദ്വീപിലെ സ്ഥിതിഗതികൾ അടുത്തിടെ സന്തുലിതമായിട്ടുണ്ടെന്നും ഈയൊരു പ്രവണത ഊട്ടിയുറപ്പിക്കാൻ സാധ്യമായ സഹായങ്ങൾ റഷ്യ ചെയ്യുമെന്നും പുചിന്റെ വിദേശ നയ അംഗരക്ഷകൻ യൂറി ഉഷകോവ് പറഞ്ഞു ഉത്തര കൊറിയയുടെ ആണവ പദ്ധതി അവസാനിപ്പിക്കാൻ നടന്ന ചർച്ചകളിൽ റഷ്യ മുമ്പ് പങ്കെടുത്തിരുന്നു

തിരുപ്പതി വെങ്കിടേശ്വര വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ബിരുദദാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ രൂപീകരണത്തിലും ആരോഗ്യ മേഖലയിലും സ്ഥായിയായ വളർച്ചയ്ക്ക് കാർഷിക മേഖല നിസ്തുലമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്

സ്ഥായിയായ വരുമാനം ലഭിക്കുന്നതിന് കൃഷിക്ക് പ്രഥമസ്ഥാനം നൽകണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു

ഒരു ഇൻ വോയിസിന് ഒന്നിലധികം ബിൽ ഉണ്ടാക്കി നികുതി വെട്ടിപ്പ് തടയുന്നതിനാണ് ഇത് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒന്നുമുതലാണ് ഈ വേ ബിൽ പ്രാവർത്തികമാക്കിയത്

ശ്രീലങ്കയിൽ നടന്ന ഭീകരാക്രമണത്തിൽ നൂറുകണക്കിന് ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ അദ്ദേഹം അനുശോചനം അറിയിക്കുകയും ചെയ്തു ശ്രീലങ്കൻ ജനതയുടെ ദുഖം പങ്കുവയ്ക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ ട്വിറ്ററിൽ കുറിച്ചു

തങ്ങളുടെ അഭ്യർത്ഥന തുടർച്ചയായി നിരസിക്കുന്നതിൽ അമേരിക്ക നിരാശ പ്രകടമാക്കി

കഠിന പ്രയത്നത്തിലൂടെ നേടിയ സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിക്കണമെന്നും മാധ്യമ പ്രവർത്തകരെ അവരുടെ കുടുംബങ്ങളിൽ തിരികെയെത്തിക്കണമെന്നും അമേരിക്ക മ്യാൻമറിനോട് ആവശ്യപ്പെട്ടതായും ശ്രീമതി മോർഗൻ പറഞ്ഞു

ഫുഡ്കോർപ്പ റേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന ഏജൻസികളുമായി ചേർന്നാണ് ഗോതമ്പ് സംഭരണം നടത്തുന്നത്

കൂടുതൽ വിവരങ്ങളുമായി സുനീഷ് ഏഴ് പുരുഷ താരങ്ങളും ആറ് വനിതുകളുമാണ് ഇന്ന് മാറ്റുരയ്ക്കുന്നത് ഇവർക്ക് വെങ്കല മെഡൽ ഉറപ്പായിട്ടുണ്ട്

കസാഖ്സ്ഥാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെ താരങ്ങളെക്കാൾ മിന്നുന്ന പ്രകടനത്തിലൂടെയാണ് കൂടുതൽ ഇന്ത്യൻ താരങ്ങൾ സെമിയിലെത്തിയിരിക്കുന്നത്

ആദ്യം ബാറ്റ് ചെയ്ത ബാംഗ്ലൂർ എ